ജി പി ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരം നഗ്മരത്തിൽ ഗതാഗത നിയന്ത്രണത്തിന് പ്രത്യേക സംവിധാനം

തിലോത്തമൻ

അയോധ്യ വിഷയ ത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയെ തുറന്ന മനസ്സോടെയും സംയമനത്തോടെയും സ്വീകരിച്ച ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പ്ലാസ്റ്റിക് വിമുക്ത ഇന്ത്യ പരിസ്ഥിതി സംരക്ഷണം മാതൃഭാഷ പ്രോത്സാഹനം തുടങ്ങിയ വിഷയങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു

ആകാശവാണിയിലൂടെയുള്ള മൻകി ബാത്തിന്റെ പുതിയ അധ്യായത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയോധ്യ വിഷയത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയെ തുറന്ന മനസ്സോടെയും സംയമനത്തോടെയും സ്വീകരിച്ച ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പ്താസ്റ്റിക് വിമുക്ത ഇന്ത്യ പരിസ്ഥിതി സംരക്ഷണം മാതൃഭാഷ പ്രോത്സാഹനം തുടങ്ങിയ വിഷയങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു വോയിസ് ബൈറ്റ് രാജ്യത്തെ സൈനികരുടെ സമർപ്പണ മനോഭാവത്തെ കൃതജ്ഞതയോടെ സ്മരിക്കാനും പ്രധാനമന്ത്രി മൻകി ബാത്തിൽ പറഞ്ഞു

മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ വരികൾ ഏവർക്കും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും മുക്തി നേടാൻ പ്ലാസ്റ്റിക് മാലിന്യ മുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഓരോ പൌരനും കൈകോർക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു

ഈ ശൈത്യകാലം ഫിറ്റ് ഇന്ത്യ മുന്നേറ്റത്തിനായി വിനിയോഗിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു വിദ്രാചരണം സ്കൂളുകൾക്ക് അടുത്ത മാസം എപ്പോൾ വേണ്ട്രമെങ്കിലും ആചരിക്കാമെന്നും പറഞ്ഞാണ് പ്രധാനമന്ത്രി ഇന്നത്തെ അദ്ധ്യായം ഉപസംഹരിച്ചത്

ആദിവാസി വിഭാഗത്തിന് ഉന്നതവിദ്യാഭ്യാസം ലഭ്യമാക്കാനും ശുദ്ധജല ലഭ്യത കാർഷിക സഹായം എന്നിവ ഉറപ്പാക്കാനും ഇതിനായുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി യോഗം ഫലവത്തായിരുന്നുവെന്നും ഫെഡറൽ സംവിധാനത്തിൽ ഗവർണർമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമുള്ള പങ്ക് വലുതാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ബത്തേരി സർവകക്ഷിയോഗം പാമ്പു കടിയേറ്റു വിദ്യാർത്ഥിനി മരിച്ച ബത്തേരി സർവജന സ്കൂൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ബത്തേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേരുന്നു നഗരസഭാ ചെയർമാന്റെ ചേമ്പറിൽ ചേരുന്ന യോഗത്തിൽ സ് കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ എം

സർവകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പ്പെട്ക്ടുക്കുന്നു രമേശ് ചെന്നിത്തല സുൽത്താൻ ബത്തേരി സർപ്പൂജന സ്കൂളിലെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകളുടെ യഥാർത്ഥ അവസ്ഥ ക ത്തുന്നതിന് പി

തോമസ് എം

എയുടെ നേതൃത്വത്തിൽ യു ഡി

തിരുവനന്തപുരം നഗരത്തിലെ ട്രാഫിക് സംവിധാനം ആറു മേഖലകളായി തിരിച്ച് ചീറ്റ എന്ന പേരിൽ ആറ് എൻഫോഴ്സ്മെന്റ് വാഹനങ്ങൾക്ക് ചുമതല നൽകുമെന്ന് ഡി ജി

ഇതുവഴി ആർക്കും ഗതാഗത നിയമ ലംഘനങ്ങൾ ക്യാമറയിൽ പകർത്തി അധികൃതർക്ക് എത്തിക്കാം മുന്നൂറിലധികം നിർദ്ദേ ശങ്ങളും പരാതികളുമാണ് പോലീസ് മേധാവിക്ക് ലഭിച്ചത്

തൃശൂർ വിയ്യൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ഗ്രൌ ിൽ ലക്ഷദ്വീപ് കേരള ഫയർമാൻമാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സേന സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തീരുമാനമെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി ദീപ

ഇതോടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലാദൃമായി തുടർച്ചയായി നാലു ഇന്നിംഗ്സ് ജയം നേടുന്ന രാജ്യമായി ഇന്ത്യ മാറി

ഇന്ത്യയ്ക്കായി ഉമേഷ് യാദവ് ര ാം ഇന്നിംഗ്സിൽ അഞ്ചു വിക്കറ്റുകൾ നേടി

പട്ടികവർഗ വികസന പ്പകുപ്പ് ഡയറക്ടർ പി